മോദി മെഗാ റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം യു

തെരച്ചിലിനായി രണ്ട് നാവിക് ഹ്ലെലികോപ്റ്ററുകളെ നിയോഗിച്ചു

ജമ്മു കാശ്മീർ ഇന്ത്യയുടെ അവിഭാജൃ ഘടകമെന്ന് ബ്രിട്ടീഷ് ന് എം പി ബോബ് ബ്ലാക്മാൻ

തിരുവനന്തപൂരത്ത് ഇന്ന് വർണപ്പകിട്ടാർന്ന സാംസ്കാരിക ഘോഷയാത്ര

കൌശൽ ധർമാമർക്ക് ഉജ്ജ്വല വിജയം

കഴിഞ്ഞ ദിവസം രാത്രി വൈറ്റ് ഹൌസ് പുറത്തുവിട്ടതാണ് ഈ വിവരം

ഹൌഡി മോഡി എന്ന് നാമകരണം ചെയ്തിരിക്കുന്ന റാലി ലോകത്തെ രണ്ടു വലിയ ജനാധിപത്യ രാജ്യങ്ങളിലെ തലവൻമാരുടെ സംഗമവേദി കൂടിയാകും

ഫൂസ്റ്റണിലെ എൻ

ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ പ്രതിഫലനമാണ് റാലിയെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു

പി ബോബ് ബ്ലാക്മാൻ അധിനിവേശ കശ്മീരിൽ നിന്ന് പാകിസ്ഥാൻ ഉടൻ ഒഴിഞ്ഞു പോകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ലണ്ടനിൽ കശ്മീരി പണ്ഡിറ്റുകൾ സംഘടിപ്പിച്ച ബലിദാൻ ദിവസ് പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം

ജെ

കശ്മീർ വിഷയത്തിൽ ബ്ലാക്ട്മാൻ നൽകിയ പിന്തുണയ്ക്ക് ഇന്ത്യൻ സ്ഥാനപതി രുചി ഘനശ്യാം നന്ദി ആറിയിച്ചു

ജെ പി വർക്കിംഗ് പ്രസിഡന്റ് ജെ

മോദി ഗവൺമെന്റിന്റെ തീരുമാനങ്ങൾക്ക് ലോക രാഷ്ട്രങ്ങൾ ഉറച്ച പിന്തുണയാണ് നൽകുന്നതെന്ന് ശ്രീ

സംഭവത്തിൽ ഇതിനകം സുരക്ഷാ വിഭാഗം അന്വേഷണം ആരംഭിച്ചതായി കുവൈത്ത് കാബിനറ്റ് വ്യക്തമാക്കി കഴിഞ്ഞ ശനിയാഴ്ച സൌദി അറേബ്യയിലെ എണ്ണ ശുദ്ധീകരണ ശാലയ്ക്കുനേരെ നടന്ന ഹൂതി വിമതരുടെ ഡ്രോൺ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് അന്വേഷണം ഊർജിതമാക്കിയത് ഡ്രോൺ ആക്രമണത്തിനുശേഷം സൌദി ഗവൺമെന്റുമായി തങ്ങൾ നിരന്തരം ബന്ധപ്പെട്ടുവരുന്നതായി കുവൈത്തിലെ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു

രാംനാഥ് കോവിന്ദ് കൂടിക്കാഴ്ച നടത്തും പ്രതിന്റിധിതല ചർച്ചകൾക്ക് ശേഷം നിരവധി സഹകരണ കരാറുകളിൽ ഇരു് രാജ്യങ്ങളും ഒപ്പുവയ്ക്കും

തിരുവനന്തപുരത്ത് ഇന്ന് വർണ്ണപ്പകിട്ടാർന്ന സാംസ്കാരിക ഘോഷയാത്ര

വെള്ളയമ്പലത്തു നിന്ന് ആരംഭിക്കുന്ന ഘോഷയാത്ര ഗവർണ്ണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഫ്ളാഗ് ഓഫ് ചെയ്യും പൂരക്കളി വേലകളി കേരളനടനം ഒപ്പന മാർഗ്ഗംകളി തുടങ്ങിയ കലാപ്രകടനങ്ങൾ ഘോഷയാത്രയുടെ മാറ്റ് കൂട്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര സഹമന്ത്രി പ്രഹ്ളാദ് സിംഗ് പട്ടേൽ മന്ത്രിമാർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ടൂറിസം മന്ത്രിമാർ എന്നിവർ ഘോഷയാത്ര കാണാനെത്തും കോവളത്ത് നടക്കുന്ന ടൂറിസം സംഗമം കേന്ദ്ര സഹമന്ത്രി പ്രഹ്ളാദ് പട്ടേൽ ഉദ്ഘാടനം ചെയ്യും നിശാഗന്ധിയിൽ നടക്കുന്ന സമാപന സമ്മേളനം ഗവർണ്ണർ ആരിഫ് മുഹമ്മദ്ഖാൻ ഉദ്ഘാടനം ചെയ്യും സുരക്ഷ ഉറപ്പാക്കാൻ നഗരത്തിൽ വിപുലമായ സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്

തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രി കെ

മാലിദ്ധീപിലെ ക്യാൻസർ നിയന്ത്രണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുകയാണ് കരാറിന്റെ ലക്ഷ്യം

പരിസ്ഥിതിയെ മറന്ന് ഇനിയൊരു വികസനം കേരളത്തിന് സാധ്യമല്ലെന്ന് ഡോ

വയനാടിന്റെ വികസനത്തിന് പ്രാദേശിക വികസന പരിപാടിയാണ് ആലോചിക്കുന്നതെന്നും അതിനായി ഗ്രീൻ ഫണ്ട് സമാഹരണവും വിനിയോഗവും വേണമെന്നും അദ്ദേഹം പറഞ്ഞു

യാങ്കൂണിൽ നടന്ന പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇന്തോനേഷ്യയുടെ കരോണോ കരോണോയെയാണ് കൌശൽ പരാജയപ്പെടുത്തിയത്

മികച്ച നേട്ടം കൈവരിച്ചു സൌരഭ് വർമ്മയെ കേന്ദ്ര പ്പാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി പ്രകാശ് ജാവദേക്കർ അഭിനന്ദിച്ചു സ്ഹുരഭിന്റെ നേട്ടത്തിൽ രാഷ്ട്രം അഭിമാനിക്കുന്നുവെന്ന് ജാവ്ദേക്കർ ട്വീറ്റ് ചെയ്തു

യു ഡി എഫ് സ്ഥാനാർത്ഥിക്കുവേണ്ടി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കെ

സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയവർ പ്രചരണ യോഗങ്ങളിലും കുടുംബയോഗങ്ങളിലും പങ്കെടുക്കും

ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിനായി സി

എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും സി

ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനുമെത്തും

ജെ പി സംസ്ഥാന അധ്യക്ഷൻ പി

ശ്രീധരൻ പിള്ളയും സംസ്ഥാന ഭാരവാഹികളും എൻ

പാലായിൽ എത്തിച്ച വോട്ടിംഗ് മെഷീനുകളിൽ ഇന്ന് ബാലറ്റ് പേപ്പർ സെറ്റ് ചെയ്യും

സംഭവത്തിന് പിന്നിൽ തുർക്കി വിമതരാണെന്നാണ് റിപ്പോർട്ട് സിറിയയുടെ തുർക്കി അതിർത്തി പ്രദേശമായ അൽറായിയിലൂൺ് ് സംഭവമെന്ന് ലണ്ടൻ ആസ്ഥാനമായ സിറിയൻ മനുഷ്യാവകാശ ക്ന്ദ്രം അറിയിച്ചു ആശുപത്രിയ്ക്ക് സമീപം ഫ്രിഡ്ജ് കയറ്റി വരികയായിരുന്ന ട്രക്കാണ് പൊട്ടിത്തെറിച്ചതെന്ന് സുരക്ഷാ വിഭാഗം വക്താവ് വ്യക്തമാക്കി

പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ലക്നൌവിൽ മന്ത്രിമാരുമായി ആശയവിനിമയം നടത്തുകയായിരുന്നു അദ്ദേഹം സദ്ഭരണവും മികച്ച മാനേജ്മെന്റും ലക്ഷ്യമാക്കിയാണ് മന്ത്രിമാർക്ക് പരിശീലനം നൽകുന്നത്